രാജ്യത്തെ സുരക്ഷാ സ്ഥിതിഗ്ഗിതി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതലയോഗത്തിൽ വിലയിരുത്തി

സ്വന്തം മണ്ണിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് പാകിസ്ഥാനോട് അമേരിക്ക

നവഭാരത സൃഷ്ടിയിൽ മുഖ്യപങ്കാളികളാകാൻ യുവാക്കളോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

എഫ് ലോകകപ്പിന്റെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ സൌരഭ് ചൌധരി മനു ഭാകർ ജോഡിക്ക് സ്വർണ്ണം

ഇന്നുട്ടി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള പ്രതിക്ക്രണ്ണമായി പാകിസ്ഥാൻ ഇന്ന് വ്യോമാക്രമണത്തിന് തുനിഞ്ഞെങ്കിലും സദാ ജാഗരൂകരായിരുന്ന ഇന്ത്യൻ വ്യോമസേന പ്രത്യയർ രാജ്യത്തിന്റെ ശ്രമങ്ങളെ വിഫലമാക്കിയെന്ന് വിദ്ദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ന്യൂഡൽഹിയിൽ മാ്ധ്യമങ്ങളെ അറിയിച്ചു പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം സ്വന്തം മണ്ണിൽ തന്നെ തകർന്ന് വീണതായി ശ്രീ രവീഷ് കുമാർ അറിയിച്ചു

ഇത് സംബന്ധിച്ച വസ്തുതകൾ പരിശോധിച്ച് വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ആക്ടിംഗ് ഹൈകമ്മീഷണർ സയദ് ഹൈദർഷായെ വിദേശകാരൃ മന്ത്രാലയം ഇന്ന് വൈകിട്ട് ചർച്ചകൾക്കായി വിളിച്ചുവരുത്തി

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോ മേധാവി ഇന്റലിജൻസ് ബ്യൂറോ മേധാവി ആഭ്യന്തര സെക്രട്ടറി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പാക് ഭീകര കൃാമ്പിന് നേരെ ഇന്തൃ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഉന്നതതലയോഗം

ഇന്ത്യൻ സേന ധീരതയ്ക്കും വീര്യത്തിനും അഭിനന്ദനമർഹിക്കുന്നതായും ന്യൂഡൽഹിയിൽ പ്രതിപക്ഷ കക്ഷി കൾ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി കവിതാ സുനു

പുൽവാമ ഭീകരവാദ ആക്രമണത്തെ അപലപിക്കുന്നതായും വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്നതിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതായും അവർ അറിയിച്ചു എന്നാൽ സൈനികർ നടത്തിയ രക്തസാക്ഷിത്വങ്ങളെ രാഷ്ട്രീയവത്കരിക്കുകയാണ് ഭരണകക്ഷിയായ ബിജെപിയെന്ന് അവർ ആരോപിച്ചു ഇടുങ്ങിയ രാഷ്ട്രീയ പരിഗണനകൾക്ക് അപ്പുറം ആയിരിക്കണം ദേശീയ സുരക്ഷയെന്ന് അവർ പറഞ്ഞു വൃവസ്ഥാപിത രീതിയനൃസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടേയും ഒരു യോഗം വിളിച്ചു

പാകിസ്ഥാന്റെ ദുർഗ്ഗതിയെ പഴിക്കുന്നതായും കാണാ തായ ഇന്ത്യൻ പൈലറ്റിന്റെ സ്റ്റിര്ക്ഷ്യിൽ അതീവ ജാഗ്രതയുണ്ടെന്നും സംയുക്ത പ്രസ്താവനയിൽ പ്പെറയുന്നു രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷീക്കാ്നെടുത്തിട്ടുള്ള എല്ലാ നടപടികളിലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു

പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അമേരിക്ക എടുത്തുപറഞ്ഞു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷീ മഹ്മൂദ് ഖുറേഷിയുമായി നടത്തിയ ടെലഫോൺ സംഭാഷണത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോ സൈനിക നടപടികൾ ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്തു

സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചതാണിത് നേരത്തേ ശ്രീനഗർ ജമ്മു ലേ പഠാൻകോട്ട് അമൃത്സർ ഗഗ്ഗൽ ഭുന്ദർ എന്നീ വിമാനത്താവളങ്ങളിൽ പൊതുഗതാഗതം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരവാദ ക്യാമ്പിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തെ തുടർന്ന് നിലന്റിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം

വെങ്കയ്യനായിഡു അറിയിച്ചു ഇന്നലെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണങ്ങൾ രാജ്യത്തെ സമാധാനവും അഭിവൃദ്ധിയും കാത്തു സൂക്ഷിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിരോധ നടപടി യായിരുന്നു എന്ന് അദ്ദേഹം വൃക്തമാക്കി

പ്രദേശത്ത് നിന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും സേന കണ്ടെടുത്തിട്ടുണ്ട് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്ന് സൈനൃവും സി ആർ പി എഫും പോലീസും പ്രദേശത്ത് സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ആക്രമണം ഉണ്ടായത്

വനിതകൾ ഉൾപ്പെടെയുള്ള ഓഫീസ്ർമാരുടെ പ്രാഥമിക സമുദ്ര പരിശീലനത്തിനായി നാവികസ്ശേനിയ്ക്ക് വേണ്ടി വാങ്ങുന്ന മൂന്ന് കേഡറ്റ് പരിശീലന കപ്പലുകളു് ് ഇതിൽ ഉൾപ്പെടുന്നു ആശുപത്രി സേവനങ്ങൾ ലഭ്യമാക്കാനു്കു ദൂരന്ത നിവാരണ സേവനങ്ങൾക്കും തെരച്ചിൽ രക്ഷാ ദൃത്തൃങ്ങൾക്കും യുദ്ധേതര ഒഴിപ്പിക്കൽ നടപടികൾക്കും ഈ കപ്പലു്കൾ ഉപയോഗിക്കാൻ സാധിക്കും

ന്യൂഡൽഹിയിൽ ഇക്കൊല്ലത്തെ ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ യുവാക്കൾ ഊർജ്ജസ്വലരും വൃത്യസ്തങ്ങളായ കർത്തവൃങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തരുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ എല്ലാവരും തീവ്രവായി പരിശ്രമക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

പുൽവാമ ഭീകരാക്രമണ കേസും വിഘടന വാദികൾക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം ലഭ്യമായ മറ്റൊരു കേസുമായും ബന്ധപ്പെട്ടാണ് തെരച്ചിൽ നടത്തിയത്

ആക്രമണത്തിലെ പ്രധാന കുറ്റക്കാരായൂ രണ്ട് ജെയ്ഷെ ഇ മുഹമ്മദ് തീവ്രവാദികളായ മുദാസ്സിർ അഫ്ലീമ്മദ് ഖാൻ സജ്ജദ് ഭട്ട് എന്നിവരുടെ വീടുകളിലുൾപ്പെടെയ്ട്ടുണ്ട് തെരച്ചിൽ നടത്തിയത്

ഡയറികളിൽ രഹസ്യക്കോ്ഡുകളിലെ കുറിപ്പുകളുൾപ്പെടെ കുറ്റകരമായ രേഖകൾ ്എൻ ഐ എ പിടിച്ചെടുത്തു ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സാ്മ്പത്തിക സഹായം ലഭൃമാക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ തെക്കൻ കശ്മീരിലെ മൂന്ന് വിഘടനവാദി നേതാക്കളുടെ വീടുകളിൽ തെരച്ചിൽ നടത്തി

മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ വസ്തുക്കളുടെ പ്രമാണങ്ങൾ തുടങ്ങിയവയും പിടിച്ചെടുത്തിട്ടുണ്ട്

ഇന്ത്യയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നത് കേവലം സങ്കല്പവും വൃർത്ഥമോഹവും മാത്രമാണെന്നും ഇന്ന് ഇന്തൃ അതിന് പ്രാപ്തരാണെന്നും അബോട്ടാബാദിലെ യു എസ് ആക്രമണത്തെ പരാമർശിച്ച് ശ്രീ

ഗംഗാ ശുചീകരണ പരിപാടികളുടെ ഭാഗമായി നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറ്റ്റ്റ്റിന്റ് പ്രതികരണം ലഭിക്കുന്നതിനായി പ്രത്യേക കോടത്തി ജ്സ്ജി അരവിന്ദ് കുമാർ കേസിൽ വാദം കേൾക്കുന്നത് നാള്ളിത്തേക്ക് മാറ്റി

മൂന്ന് സ്വർണ്ണ മെഡലുൾപ്പെടെ ഹംഗറിയോടൊപ്പം ഇന്ത്യ ഐ എസ് എസ് എഫ് ലോകകപ്പ് മത്സരങ്ങളിൽ ഒന്നാമതെത്തിയെങ്കിലും ഒരു ഒളിമ്പിക് കാട്ട നേടാനെ കഴിഞ്ഞുള്ളൂ